ഇന്നലെ ന്യൂഡൽഹിയിൽ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കുശേഷം ടിറ്ററിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി തുളസീദാസ്

രാജൃത്തെ സാമ്പത്തിക മേഖലയിലെ പ്രഗത്ഭരായ നാൽപ്പതിലധികം സാമ്പത്തിക വിദഗ്ധരാണ് നിതി ആയോഗ് സംഘടിപ്പിച്ചു സാമ്പത്തിക ശാസ്ത്രജ്ഞൻമാരുടെയും വിദഗ്ധരുടെയും യോഗത്തിൽ പങ്കെടുത്തത് സാമ്പത്തിക നയം മുന്നോട്ടുള്ള വഴി എന്ന പ്രമേയത്തിന്മേലായിരുന്നു ചർച്ച

കേന്ദ്ര വാണിജ്യ വൃവസായ മന്ത്രി പീയുഷ് ഗോയൽ കേന്ദ്ര സഹമന്ത്രി ഇന്ദ്രജിത് സിംഗ് നീതി ആയോഗ് വൈസ് ചെയ്ട്ര്മാൻ രാജീവ് കുമാർ സി ഇ ഒ അമിതാഭ് കാന്ത് ഉന്നത് കൃഷ്ട്യോഗസ്ഥർ തുടങ്ങിയവർ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്ക്കാഴ്ചയിൽ പങ്കെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിന് നിയോഗിച്ച മന്ത്രിതല കമ്മിറ്റി കാർഷിക പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കാൻ ഡിജിറ്റൽ സാങ്കേതികവിദൃ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാനൃത്തെക്കുറിച്ച് ശുപാർശ നൽകിയുന്നു നിർമ്മിത ബുദ്ധി ഡേറ്റാ അനാലിസിസ് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കർഷകരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ നൂറോളം മൊബൈൽ ആപ്സിക്കേഷനുകളും കൊണ്ടുവന്നിട്ടുണ്ട്

തീവ്രവാദ സാന്നിധ്യം ഇട്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിനിടെയാണ് ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ വക്താക്കൾ അറിയിച്ചു

ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്

എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ടുമെന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിന്മേൽ പ്രതികരിക്കവേ കേന്ദ്ര വിദേശകാര്യ വക്താവ് രവീഷ് കുമാറാണ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ വിഭാഗത്തിലേതുൾപ്പെടെയുള്ള എല്ലാ പൌരന്മാർക്കും തുലൃ പരിഗണനയും അവകാശങ്ങളുമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനമായ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു ഇൻഡ്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഡോ മുഖർജി അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിക്കുകയാരുന്നുവെന്ന് ശ്രീ

ന്യൂഡൽഹിയിലെ ബി ജെ

ആസ്ഥാനത്ത് ഡോക്ടർ മുഖർജിയുടെ ഛായാചിത്രത്തിനുമുന്നിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

സംസ്ഥാനത്തുണ്ടായ ദുരന്തത്തിനുപിന്നിൽ ലിച്ചി പഴം കഴിച്ചിത്രാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്ന് ഗവേഷണക്കു ്ട് ഡയറക്ടർ വിശാൽ നാഥ് പറഞ്ഞു മസ്തിഷ്ക ജൂരം ക്ലായിക്കുന്നതിൽ വൈറ്റമിൻ സി കാൽസ്യം പൊട്ടാസ്യം ്യൂ സോഡിയം ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളാൽ സമ്പുഷ്ടമായി ലിച്ചിപഴം കാരണമല്ല ഇതുസംബന്ധിച്ച് ജനങ്ങളിൽ ബോധവൽക്ക്ത്ണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മസ്തിഷ്കജരവുമായി ബന്ധപ്പെട്ട് പരിശോധനയിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ഒരു ഡോക്ടറെ സസ്പെന്റ് ചെയ്തിട്ടുണ്ട്

വിദ്യാഭ്യാസമന്ത്രി സമീർ രജ്ഞൻ ദാസ് അധ്യക്ഷനായ യോഗത്തിലാണ് തീരുമാനമെടുത്തത്

ഇത് രക്ഷാകർത്താക്കൾക്കാണ് നൽകുക

തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടില്ല

ഛത്തീസ്ഗഢ് യു

യുടെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ കെ

ഇതിന്റെ ഭാഗമായി കണ്ണൂരിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കാസർകോട് ജില്ലകളിലെ ഒറ്റപ്പെ ട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കു സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും ആവാമി ലീഗ് അധ്യക്ഷയുമായ ഷെയ്ക്ക് ഹസീന ഈ വേളയിൽ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു

ഇറാന്റെ ആണവ പരിപാടി കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പരിധി ലംഘിക്കുമെന്ന ടെഹറാന്റെ പ്രഖ്യാപനത്തെത്തുടർന്നാണ് ഉപരോധം ശക്തമാക്കാൻ തീരുമാനിച്ച ത് ഇറാൻ നേതൃത്വം അവരുടെ ആണവ നയത്തിൽ നിന്നും പിന്നോട്ട് പോയില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം കൂടുതൽ വ്യാപിപ്പിക്കു മെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി

എന്നാൽ കഴിഞ്ഞ വർഷം അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു അമേരിക്കയുടെ ഏക പക്ഷീയമായ ഈ നടപടിയെ തുടർന്ന് ഇറാൻ ആണവ കരാറിൽ നിന്ന് പിൻമാറുകയായിരുന്നു ഇറാന്റെ നടപടിക്കെതിരെ സൈനിക നീക്കം ഉടൻ ഇല്ലെന്നും ഉപരോധങ്ങൾ ശക്തമാക്കുന്ന നടപടി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി

ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ലോഡ്സിലാണ് മത്സരം ആറ് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റ് മാത്രം നേടിയ ദക്ഷിണാഫ്രിക്ക ഇതിനകം സെമിഫൈന ലിൽ നിന്ന് പുറത്തായിക്കഴിഞ്ഞു

കസമോറോ ഫെർമിനോ എവർടെൻ വില്യൻ ആൽവേയ്സ് എന്നിവരാണ് ബ്രസീലിനുവേണ്ടി ഗോൾ നേടിയത്

ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ബൊളീവിയയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് വെനിസ്ട്രേല് ക്വാർട്ടറിൽ ഇടം നേടിയത്